ജമ്മു കശ്മീരിലെ പുൽവാമ ജില്ലയിൽ സുരക്ഷാസേനയും ഭീകരരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ മൂന്നു ഭീകരർ കൊല്ലപ്പെട്ടു ഒരു ജവാന് വീരമൃത്യു

തിരുവനന്തപുരത്തു നടക്കുന്ന കുട്ടികളുടെ രണ്ടാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഇന്ന് സമാപിക്കും

രാഷ്ട്രീയ പാർട്ടികളെല്ലാം പ്രചാരണ ചൂടിലാണ് മുതിർന്ന ബി

പി നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്ര മോദി ഉത്തർപ്രദേശിലെ മാഉവിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു പാവപ്പെട്ടവരുടെയും കർഷകരുടെയും സ്ത്രീകളുടെയും ഉന്നമനത്തിനായി തന്റെ ഗവൺമെൻ് പ്രതിജ്ഞാബദ്ധമായിരുന്നുവെന്ന് ശ്രീ മോദി പറഞ്ഞു ഇന്ന് ചന്ദൌലി മിർസാപൂർ എന്നിവിടങ്ങളിലെ പൊതുയോഗങ്ങളിലും പ്രധാനമന്ത്രി പങ്കെടുക്കും

ജെ

അധൃക്ഷൻ അമിത്ഷാ മഹരാജ്ഗഞ്ജിൽ നടക്കുന്ന റാലിയിലും ഗോരഖ്പൂരിൽ നടക്കുന്ന റോഡ് ഷോയിലും പങ്കെടുക്കും കോൺഗ്രസ് അധൃക്ഷൻ രാഹൂൽ ഗാന്ധി ഉത്തർപ്രദേശിലെ ഖുഷിനഗറിലും ബീഹാറിലെ പറ്റ്നയിലും പ്രചാരണ യോഗങ്ങളെ അഭിസംബോധന ചെയ്യും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി വദ്ര ഉത്തർപ്രദേശിലെ മഹാരാജ് ഗഞ്ജിൽ ഇന്ന് പ്രചാരണം നടത്തും

അക്രമസംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നേരത്തെ നിശ്ചയിച്ചതിൽ നിന്നും ഒരു ദിവസം മൂമ്പാണ് പ്രച്ചാരുണ്ട് അവസാനിക്കുന്നത് പശ്ചിമബംഗാളിലെ ഒൻപതു ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ഞ്ഞായറിങ്ങ്ച വോട്ടെടുപ്പ് നടക്കുന്നത്

തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഭരണഘടന നൽകിയിരിക്കുന്ന പ്രത്യേക അധികാരങ്ങൾ ഉപയോഗിച്ച് സ്വീകരിച്ച ഇത്തരത്തിലൊരു നടപടി ഇത് ആദൃമാണെന്ന് ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ ചന്ദ്രഭൂഷൺ കുമാർ ന്യൂഡൽഹിയിൽ വാർത്താലേഖകരോട് പറഞ്ഞു സാമൂഹിക പരിഷ്കർത്താവായ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിന്റെ പ്രതിമ തകർക്കാൻ ശ്രമിച്ചതിൽ കമ്മീഷൻ അതീവ ദുഖം പ്രകടിപ്പിച്ചു സംസ്ഥാന ആഭ്യന്തര പ്രിൻസിപ്പൽ സെക്രട്ടറി അത്രി ഭട്ടാചാരൃ സി ഐ

ഡി ജി രാജീവ് കുമാർ എന്നിവരെ തത്സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടു ഇന്ന് രാത്രി പത്തുമണിയ്ക്ക് ശേഷം പൊതുയോഗങ്ങളോ റാലികളോ തിരഞ്ഞെടുപ്പ് പ്രചാരണപ്രവർത്തനങ്ങളോ പാടില്ലെന്ന് കമ്മീഷൻ ഉത്തരവിട്ടു അതേസമയം കമ്മിഷന്റെ നടപടിയിൽ മുഖൃമന്ത്രി മമതാ ബാനർജി അതൃപ്തി രേഖപ്പെടുത്തി

തെരഞ്ഞെടുപ്പ് കമ്മിഷന്റെ നടപടി ഭരണഘടനാ വിരുദ്ധവും നീതിക്ക് നിരക്കാത്തതുമാണെന്നും മമതാ ബാനർജി ആരോപിച്ചു

ഡംഡം ബരാസത്ത് ബാസിർഹത് ജയ് നഗർ മധുരാപൂർ ഡയമണ്ട് ഹാർബർ ജാദവ്പൂർ ദക്ഷിണ കൊൽക്കത്ത ഉത്തര കൊൽക്കത്ത എന്നിവിടങ്ങളിലാണ് പോളിംഗ് നടക്കുന്നത്

തിരഞ്ഞെടുപ്പ് കമ്മിഷൻ ബി

പി യൂടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പ്രവർത്തിക്കുന്നതെന്നും ഭരണഘടനാപരമായ കർത്തവൃത്തിൽ നിന്ന് കമ്മിഷൻ പിന്മാറുകയാണെന്നും പാർട്ടി വക്താവ് രൺദീപ് സിംഗ് സൂർജേവാല ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മധുരാപൂർ ഡ്യൂഡ്ട്രിക് എന്നിവിടങ്ങളിൽ ഇന്ന് നടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പൊതുറാലികൾക്ക് സ്ഹായകരമാകുംവിധമാണ് കമ്മിഷന്റെ നടപടികളെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുഷ്ഠിന് ിർട്ടോല ആരോപിച്ചു ചൊവ്വാഴ്ച കൊൽക്കത്തയിൽ റോഡ്ഷോയ്ക്കിടെയ്ുണ്ടായ് ആക്രമണത്തിന് ഉത്തരവാദി ബി

പി അധ്യക്ഷൻ അമിത് ഷായാണെന്നും അദ്ദേഹ്പെട്ടപറഞ്ഞു

കോൺഗ്രസ് എം എൽ എയും മുൻസിപ്പൽകാരൃ മന്ത്രിയുമായിരുന്ന സി

ഷിവല്ലിയുടെ നിര്യാണത്തെ തുടർന്നാണ് കൂണ്ടഗോൾ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് വേണ്ടിവരുന്നത് ചിഞ്ചോലിയിൽ കോൺഗ്രസ് എം

എ ഉമേഷ് യാദവ് സ്ഥാനം രാജിവച്ച് ലോക്സഭാ തിരഞ്ഞെടൂപ്പിൽ ബി

പി സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കെതിരെ മത്സരിച്ചിരുന്നു

ഏറ്റുമൂട്ടലിൽ രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ഒരു പ്രദേശവാസിക്കും പരിക്കേറ്റിറ്റുണ്ട് സ്ഥലത്തുനിന്ന് ആയുധങ്ങൾ കണ്ടെടുത്തായി സൂരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു പൂൽവാമ ടൌണിൽ കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട് സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി പൂൽവാമയിലും സമീപ പ്രദേശങ്ങളിലും ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തിവച്ചു

ൻ ഭൂവത്തെ തൂടർന്ന് നഗരത്തിലെ സൂരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്

വിദേശികൾക്ക് കൂടൂംബ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തലല്ലാതെ മെറിറ്റ് അടിസ്ഥാനത്തിൽ മൂൻഗണന നൽകൂന്ന നയത്തിനാണ് രൂപം നൽകുന്നത് ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ഗ്രീൻ കാർഡിനുവേണ്ടിയുള്ള കാത്തിരിപ്പിന് ഇതോടെ വിരാമമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ട്രംപിന്റെ മുതിർന്ന സുരക്ഷാ ഉപദേഷ്ടാവ് ജാർഡ് കൂഷ്നർ നേതൃത്വം നൽകുന്ന പദ്ധതി അതിർത്തി സുരക്ഷ ശക്തമാക്കാൻ ലക്ഷ്യമിടുന്നു പുതിയ നയത്തിലൂടെ മെറിറ്റും ഉയർന്ന വിദ്യാഭ്യാസ യോഗൃതകളും പ്രൊഫഷണൽ യോഗൃതകളുമുള്ളവർക്ക് അവസരം നൽകി ഗ്രീൻ കാർഡ് സംവിധാനത്തെ മികവുറ്റതാക്കാനും ലക്ഷ്യമിടുന്നു

ഇതുമായി ബന്ധപ്പെട്ട ഉത്തവിൽ അദ്ദേഹം ഒപ്പൂവച്ചു ഉത്തരവ് പ്രകാരം രാജ്യത്തിന്റെ സൂരക്ഷയ്ക്ക് ഭീഷണിയായേക്കാവുന്ന വിദേശ ടെലികോമുകൾ ഉപയോഗിക്കുന്നതിൽ നിന്നും അമേരിക്കൻ കമ്പനികളെ വിലക്കിയിട്ടുണ്ട്

എന്നാൽ നിരീക്ഷകരുടെ അഭിപ്രായ പ്രകാരം ഉത്തരവ് പ്രധാനമായും ലക്ഷ്യം വച്ചിരിക്കുന്നത് ചൈനീസ് ടെലി കമ്മ്യൂണിക്കേഷൻ കമ്പനിയായ ഹുവായിയെയാണ് ഈ കമ്പനിയുടെ ഉല്പന്നങ്ങൾ ചൈന നിരീക്ഷണത്തിനായി ഉപയോഗിച്ചേക്കുമെന്ന് യു എസ് ഉൾപ്പെടെ ഏതാനും രാജൃങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു

സമാപന സമ്മേളനം അൽപസമയത്തിനകം ശ്രീ

കൂട്ടികൾ സംവിധാനം ചെയ്ത നാല് ഹ്രസ്ഥിത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മികച്ച ചിത്രത്തിനും മികച്ച നടി നടന്മാർക്കും ഇന്ന് പുർസ്സ്കാർങ്ങൾ നൽകും

ഹരിത ഉല്പന്നങ്ങൾ ആരോഗൃം കൃഷി ടൂറിസം ബയോ ടെക്നോളജി എന്നിവ ഇതിലുൾപ്പെടുന്നു

സിക്കിം ജനതയ്ക്ക് ശോഭനവും സമ്പൽസമൃദ്ധവുമായ ഭാവി ആശംസിക്കുന്നതായി ശ്രീ കോവിദ് ടിറ്ററിൽ കൂറിച്ചു